ക്കും ഉടൻ സാമ്പത്തിക സഹായും നൽകുമെന്ന് മന്ത്രി തോമസ് ഐസക്

പദ്ധതികൾ നടപ്പാക്കു്മെന്ന് വിദ്യാഭ്യാസമന്ത്രി സി

അപമാനിച്ചവർക്കെതിരെ കേസെടുക്കും ഹനാന് മുഖ്യമന്ത്രിയുടെ പിന്തുണ

തുറന്നേക്കുമെന്ന് മന്ത്രി എം

ടടടടടടടടടടടട അൽഫോൺസ് കണ്ണന്താനം കുമ്പസാരം നിരോധിക്കണമെന്ന ദേശീയ വനിതാ കമ്മീഷന്റെ നിലപാട് ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ദേശീയ വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞ നിലപാടുമായി കേന്ദ്ര ഗവൺമെന്റിന് ഒരു ബന്ധവുമില്ലെന്ന് ശ്രീ

കുമ്പസാരം നിരോധിക്കണമെന്നത് രേഖാൾമ്മയുടെ വൃക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹം വൃക്തമാക്കി മതവിശ്വാസങ്ങളിൽ നരേന്ദ്ര മോദി ഗവൺമെന്റ് ഒരിക്കലും ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

തോമസ് കുട്ടനാട്ടിൽ മട വീണ് നശിച്ച് എല്ലാ പാടശേഖരങ്ങൾക്കും ഉടൻ സാമ്പത്തിക സഹായം ന്ത്ർക്ക്മെന്ന് മന്ത്രി ടി

തോമസ് ഐസക് ഇൻഷുറൻസ് ള്ള്ളതും ഇല്ലാത്തതുമായ പാടശേഖരങ്ങൾക്ക് സാമ്പത്തിക സഹായം മീനൽകും

അടുത്ത മന്ത്രിസഭായോഗം തുടർ സഹായങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു

ശൈലജ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉന്നത നിലവാരത്തിൽ സജ്ജമാക്കിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് രോഗികൾക്ക് തുറന്നുകൊടുക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ

ശൈലജയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തീരുമാനിച്ചു വിവിധതരം ഉപകരണങ്ങൾ വിന്യസിച്ച് ട്രയൽ റണ്ണിന് ശേഷം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു

വെന്റിലേറ്റർ സംവിധാനമുള്ള നൂറോളം ഐ

കിടക്കകളണ് ഇവിടെയൊരുക്കിയിട്ടുള്ളത്

ജെറിയാട്രിക് വിഭാഗത്തിൽ പി

കോഴ്സ് ആരംഭിക്കുന്നതിനുള്ള നടപടിയെടുക്കാനും പുതിയ അത്യാഹിത വിഭാഗവും ട്രോമകെയർ സംവിധാനവും വേഗത്തിൽ പ്രവർത്തനസജ്ജമാക്കാനും മന്ത്രി നിർദേശം നൽകി

മുസ്ലീം ലീഗ് നിയമസഭാ പാർട്ടി സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപറേഷൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്

രവീന്ദ്രനാഥ് ശാസ്ത്രാഭിമുഖ്യം വളർത്താൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി സി

പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ വിവിധ ഏജൻസികൾ നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സമഗ്രരേഖ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തയ്യാറാക്കിയ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ഡോക്യുമെന്ററി വീഡിയോ ദൂരദർശൻ ഡയറക്ടർ ബൈജു ചന്ദ്രന് നൽകി പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സ്വന്തം കാലിൽ നിന്ന് പഠിക്കുക എന്നത് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹനാനെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ കേരള വനിതാ കമ്മീഷൻ സ്വമേധയ കേസെടുത്തു സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മിഷൻ അധ്യക്ഷ എം

ഹനാനെതിരെ അവഹേളനപരമായ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസിന് നിർദ്ദേശാഹ് ന്റൽകി

സമൂഹ മാധ്യമങ്ങൾ ഇരുതലമൂർച്ചയുള്ള വാളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൈയിൽ കിട്ടുന്നതെന്തും പ്രചരിപ്പിക്കുന്ന രീതി ആശാസ്യമല്ല അസത്യ പ്രചരണം കൂടുതൽ വിപത്തുകളിലേക്ക് നയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കനത്ത മഴ തുടർന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലങ്ക്വെദ്യുത നിലയത്തിന്റെ സംഭരണിയായ ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ളവ തുറക്കേണ്ടി വരുമെന്നാണ് സൂചന

എന്നാൽ വരും ദിവസങ്ങളിൽ നീരൊഴുക്ക് കുറഞ്ഞാൽ അണക്കെട്ട് തുറക്കുന്നത് പരമാവധി ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു

ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ താഴ്ഭാഗത്തുള്ള പെരിയാർ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകികഴിഞ്ഞു

രാമപുരം സബ് രജിസ്ട്ട്ടാർ ഓഫിസിലെ ജൂനിയർ സൂപ്രണ്ട് എം ജയനാഥിനെ കൈക്കൂല്പി കേസിൽ കോടതി ശിക്ഷിച്ചതിനാൽ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടതായി മന്ത്രി ജി സുധാകരൻ മാന്നാർ സബ് രജിസ്ട്രാർ ഓഫിസിൽ ജോലി ചെയ്യവെ അപേക്ഷ സമർപ്പിച്ച കക്ഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്

ട്ടടടടടടടടടടടട വാഹനാപകടം അമ്പലപ്പുഴക്ക് സമീപം പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളായ ഹസീന നൌഫൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ശ്രീകല എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം കൊല്ലത്തെത്തിച്ചു ശ്രീകലയുടെ മൃതദേഹം കൊല്ലം എ ആർ ക്യാമ്പിലും ജോലിചെയ്തിരുന്ന കൊട്ടിയം പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വച്ചു മന്ത്രി സി രവീന്ദ്രനാഥ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഡോ അരുൾ ആർ

കൃഷ്ണ എൻ

പ്രേമചന്ദ്രൻ എം

എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു

ഇന്ത്യയിലെ ഏഴ് ഫിഷറീസ് ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമയാണ് പദ്ധതി നടപ്പാക്കുന്നത് അലങ്കാര മത്സ്യമേഖലയിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്നതാണ് ഗവേഷങ്ങ് പദ്ധതി നാളെ രാവിലെ സി എം എഫ് ആർ ഐ യിൽ നട്ടക്കുന്ന ചടങ്ങിൽ ഭാരതീയ കാർഷിക ഗവേഷണ കേന്ദ്രം സ്പ്പ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോ ജെ കെ ജന പദ്ധതിയുടെ ഉദ്ഘൂടന്നം നിർവ്വഹിക്കും

ജനറൽ കൌൺസിൽ യോഗത്തിൽ ജനാധിപതൃപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് സംഘടനാ പ്രതിനിധികളുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ പെരുമാറ്റചട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് ജീവനക്കാരുടെ ശ്രദ്ധയിൽകൊണ്ടുവരാൻ വേണ്ടി ഇറക്കിയ സർക്കുലർ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു

മുട്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും

മറ്റന്നാൾ വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടി മന്ത്രി കെ കെ ഷൈലജ ഉദ്ഘാടനം ചെയ്യും

പത്തനംതിട്ടയിലെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതിയ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ആന്റൊ ആന്റണി പി എം പത്തന്ംതിട്ടയിൽ അറിയിച്ചു ശബരിമല സന്ദൂർശനം കൂടി ഈ പര്യടന പരിപാടിയിൽ ഉൾപെടുത്തണമെന്ന് ആപ്പിപ്രധാന മന്ത്രിയുടെ ഓഫീസിനോട് അഭ്യർഥിച്ചിട്ടുണ്ടെന്നും ്ത്ര്ദ്ദേഹം പറഞ്ഞു